നിയുക്ത ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ കേരളത്തിൽ എത്തും

നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ്യ്യോട്ടെണ്ണൽ ഫലം പുറത്തു വന്നു തുടങ്ങി പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ്യു ഡി എഫ്

ജോസ് ടോമും എൻ

സ്ഥാനാർത്ഥി എൻ ഹരിയും പത്രിക സമർപ്പിച്ചു

ഹോട്ടലുകളിൽ ചൂടുവെള്ളത്തിൽ തിളപ്പിക്കാത്ത വെള്ളം ചേർക്കുന്നത് കർശനമായി തടയുമെന്ന് ആരോഗൃ വകുപ്പ്

ചന്ദ്രനോട് കൂടുതൽ അടുപ്പിക്കാനുള്ള അവസാന ദൌത്യവും വിജയം കണ്ണൂർകോർപ്പറേഷൻ മേയർ ആയി യു ഡി

ലെ സുമ ബാലകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു

രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ജീവനക്കാർ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി കൂടുതൽ വിവരങ്ങളുമായി ലിഖിത വിജയൻ വോയിസ്

ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണ്ണർക്ക് യാത്രയയപ്പ് വിരുന്ന് നൽകി ഓഖിയും പ്രളയവും ഉണ്ടായപ്പോൾ കേരളം കാട്ടിയ ഒരുമ സംസ്ഥാനത്തിന്റെ പുനർ നിർമ്മാണത്തിലും ഉണ്ടാവണമെന്ന് ഗവർണർ പി

മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമാണ് കേരളത്തിന്റെ ഗവർണർ പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സാമൂഹ്യ നീതി ലിംഗസമത്വം എന്നിവയിൽ ഗവർണർ സ്വീകരിച്ച നിലപാടുകൾ മാതൃകാപരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

തിരുവനന്തപുരം അമ്പൂരി കുടിയൻകോണം വാർഡിൽ യു

സ്ഥാനാർത്ഥി പി

ചെങ്കൽ ഗ്രാമ പ്ഞ്ച്ടായത്തിലെ മര്യാപുരം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി

മറ്റ് ഫലങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയ്ക്കുന്ന്

കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന രമ്യഹരിദാസ് എം പി രാജിവെച്ച ഒഴിവിലേക്കാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ഇരുപക്ഷത്തിനും തുല്യഅംഗങ്ങളുള്ള ബ്ലോക്കിൽ ഇതോടെ യു ഡി എഫ് ഭരണം നിലനിർത്തി

ഡി എഫ് അംഗമായിരുന്ന പി ശാന്തകുമാരിയുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്

ഇടുക്കി അടിമാലി ബ്ലോക്ക് കൊന്നത്തടി ഡിവിഷൻ യു ഡി

കോൺഗ്രസ് സ്ഥാനാർത്ഥി അമ്പിളി സലീലൻ സി

എം

കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി

എം

ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമും എൻ

എ സ്ഥാനാർത്ഥി എൻ

ഇടതു മുന്നണിയുടെ നിയോജക മണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇടതുപക്ഷത്തെ മുൻനിര നേതാക്കളെല്ലാം പരിപാടിയിൽ പങ്കെടുക്കും

മുക്കൈ കൽപ്പാത്തി ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി നിലവിൽ മംഗലം കാഞ്ഞിരപ്പുഴ വാളയാർ ഡാമുകൾ ഉൾപ്പടെ പാലക്കാട് ജില്ലയിലെ നാലു ഡാമുകൾ തുറന്നിട്ടുണ്ട് മഞ്ഞപ്പിത്തം ഫോൺ ഇൻ സംസ്ഥാനത്ത് വിവിധ ജീല്ലകളിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ഹെൽത്ത് സർവ്വീസ് ഡയറക്ടർ ആർ

മാതൃപേടകത്തിൽ നിന്ന് വേർപെട്ട് പൂർണമായും സ്വതന്ത്രമായ വിക്രം ലാൻഡർ ചന്ദ്രനോട് കൂടുതൽ അടുപ്പിക്കാൻ ഇന്ന് പുലർച്ചെ നടത്തിയ രണ്ടാം ദൌത്യവും വിജയിച്ചു

ഡി

എഫിലെ ഇ

കഴിഞ്ഞ മാസം യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസപ്രമേയം വിജയിച്ചതിനെ തുടർന്നാണ് മേയർ തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് സ്വകാര്യ പണമിടപാട് സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ മുത്തൂറ്റ് ഫിനാൻസിലെ തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് മന്ത്രി ടി

വൈകീട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചർച്ചയിൽ തൊഴിലാളി പ്രതിനിധികളും കമ്പനി മേധാവികളും പങ്കെടുക്കും

ഐ നെയ്യാറ്റിൻകര സ്വദേശി ശ്രീജിവിന്റേത് കസ്റ്റഡിമരണമല്ല ആത്മഹത്യയെന്ന് സിബിഐ കോടതിയിൽ റിപ്പോർട്ട് നൽകി ആത്മഹത്യാക്കുറിപ്പും ശാസ്ത്രീയ തെളിവുകളും ചൂണ്ടിക്കാട്ടിയാണ് സിബിഐ യുടെ റിപ്പോർട്ട്

സംഭവത്തിൽ ചില പൊലീസുകാർക്കെതിരെ വകുപ്പുതല നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട്

ബി ഐ യുടെ അന്വേഷണം ഒത്തുകളിയാണെന്നും ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും ദീർഘനാളായി സെക്രട്ടറിയേറ്റിന് മുന്നിൽ നിരാഹാര സമരത്തിലുള്ള സഹോദരൻ ശ്രീജിത്ത് പ്രതികരിച്ചു

ഇപ്പോൾ മഴ മൂലം കളി നിർത്തിവച്ചിരിക്കുകയാണ് സഞ്ജു വി സാംസണും ശിഖർ ധവാനും ഇന്ത്യൻ ടീമിലുണ്ട്